മുരളീധരൻ തനിക്കെതിരായ ആരോപണം നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ്

ഗാന്ധിജിയുടെ ജന്മവാർഷികം ഇന്തൃയും ലോകവും വിപുലമായാണ് ആചരിക്കുന്നത്

എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ആപ്തവാക്യ വുമായി ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങൾ സഹന സമരപാതയിലൂടെ യാഥാർത്ഥൃത്തിലെത്തിച്ച രാഷ്ട്രപിതാവിന് രാജ്യം ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും പുഷ്പാർച്ചന നടത്തി സമ്പുഷ്ടമായ ഇന്ത്യ പടുത്തുയൂർത്താനും മഹാത്മാ ഗാന്ധിയുടെ സ്വപ്നങ്ങൾ യാഥാർഥ്ച്ച്മാക്കാനും ഉള്ള ആത്മ സമർപ്പണം എല്ലാ ജനങ്ങളുടെയ്യുടെ ഭാഗത്തുനിന്നും ഉണ്ടാക ണമെന്ന് രാഷ്ട്രപതി രാംനാഥ് ക്കോവിന്ദ് പറഞ്ഞു സമൃദ്ധവും അനുകമ്പയുമുള്ളതുമായ് രാജ്യം പടുത്തുയർത്താൻ ബാപ്പുവി ന്റെ ആശയങ്ങൾ നയ്കിക്കുന്നതായും പ്രധാനമന്ത്രി വൃക്ത മാക്കി

ഡൽഹി വാല്മീകി സദനിലേക്കുള്ള റോഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വൃത്തിയാക്കി

കേരളത്തിലും ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നിരവധി പരിപാടികളാണ് നടത്തുന്നത് തിരുവനന്തപുരം ഗാന്ധിപാർക്കിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹാരാർപ്പണവും പുഷ്പാഞ്ജലിയും നടത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ സ്മാരകമായ വിജയഘട്ടിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ഇന്ത്യയുടെ മഹാനായ പുത്രൻ ലാൽ ബഹാദൂർ ശ്യസ്ത്രി അസാധാരണമായ സമർപ്പണത്തോട്ട്ട് യാണ് രാജ്യത്തെ സേവിച്ചതെന്നും ഹരിത വിപ്തമ്പ് ശ്വേത വിപ്തവം യുദ്ധകാല നേതൃത്വം എന്നിപ്പയിൽ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ പങ്ക് രാജ്യത്തിന് പ്രചോദനമായി തുടരുന്നതായും രാഷ്ട്രപ്തി ടിറ്ററിൽ കുറിച്ചു ലാളിതൃത്തിന്റെയും വിനയത്തിന്റെയും വിവേകത്തിന്റെയും പ്രതീകമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു അനുസ്മരിച്ചു രാജ്യത്തിന്റെ ക്ഷേമത്തിനായി ജീവിതം അർപ്പിച്ച മഹാത്മാവായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു

ഇരുവരും കാറന്റൈനിലാണ് ആരോഗ്യനീല്ല തൃപ്തികരമാണെന്നും തന്റെ ജോലി തുടരാവുന്നത്താണെന്നും ഡോക്ടർമാർ അറിയിച്ചതായി ട്രംപ് ട്ടൂീറ്ററിൽ കുറിച്ചു

ഇന്ത്യൻ വിദേശ ഇന്ത്യൻ ഗവേഷകരുടേയും വിദ്യാഭ്യാസ വിദഗ്ധരുടേയും ആഗോള വെർച്ചൽ ഉച്ചകോടിയാണ് വൈഭവ്

രണ്ട് ലക്ഷത്തി നാലായിരത്തിൽസ്കം പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചത്

വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു

തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധൃമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അന്വേഷണം ശരിയായ ദിശയിലായതു കൊണ്ടാണ് സിപിഐഎം നേതാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതെന്നും ശ്രീ

അന്വേഷണം സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമാണെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

ആരിൽ നിന്നും ഐ ഫ്മോൺ സ്വീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പിറഞ്ഞു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് ഐ ഫോൺ സമ്മാനമായി നൽകിയെന്ന് യൂണിടാക്ക് എം ഡി യുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം

ഡിയെ താൻ കണ്ടിട്ടില്ല അഭിഭാഷകരുമായി ഇക്കാരൃം സംസാരിച്ചിട്ടുണ്ടെന്നും നിയമപരമായി നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് വൃക്തമാക്കി

വിദൂര വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാനത്തെ ഓപ്പൺ സർവ്വകലാശാലയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ നവോത്ഥാന നായകൻ ശ്രീനാരായണഗുരുവിനോടുള്ള ആദരവ് കൂടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു

വിശദാംശങ്ങളുമായി കൊല്ലത്തു നിന്നും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ